എല്ലാ പൊലീസ് സ്റ്റേഷനുകളും ദുരന്തനിവാരണത്തിന് സജ്ജമാക്കിയതായി ഡി ജി പി ലോക്നാഥ് ബെഹ്റ

പെരിയാറ്റിൽ ഒഴുക്ക് അതി ശക്തമായി

നിലവിലുള്ളതിനേക്കാളും മുന്നിരട്ടിയിലധികം വെള്ളം തുറന്നു വിടേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ

ജാഗ്രതാ നിർദ്ദേശം മൈക്ക് അനൌൺസ്മെന്റിലൂടെ ജനങ്ങളെ അറിയിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

ചീഫ് സെക്രട്ടറി ടോം ജോസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കാലവർഷക്കെടുതി തുടരുന്ന സാഹചരൃത്തിൽ ഇന്നു മുതൽ മൂന്നു ദിവസത്തെ പൊതുപരിപാടികൾ മുഖ്യമന്ത്രി റദ്ദാ ക്കി രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനത്തിന് മുഖ്യമന്ത്രി തല സ്ഥാനത്തുണ്ടാകും

കൂടുതൽ സഹായം കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മഴക്കെടുതി വിലയിരുത്താൻ എത്തിയ കേന്ദ്രസംഘത്തെ നില വിലെ സ്ഥിതി അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു വെള്ളം വരു ന്നതിനനുസരിച്ച് പരമാവധി സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്ത തായും ചന്ദ്രശേഖരൻ ആലുവയിൽ അറിയിച്ചു കെടുതികൾ കൈകാരൃം ചെയ്യാൻ സായുധസേന ഉൾപ്പെടെ എല്ലാ വിഭാഗ ങ്ങളുടെയും സഹകരണം തേടിയിട്ടുണ്ട്

ആലുവായിൽ ബലിതർപ്പണത്തിന് വരുന്നവർ ഉത്തരവാദിത്പപ്പെട്ടവരുടെ നിർദേ ശങ്ങൾ പാലിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു

ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ പൊലീസ് സ്റ്റേഷനുകളും ദൂരന്ത് നിവാരണത്തിന് സജ്ജമാക്കിയതായി ഡിജിപ്പി ലോക് നാഥ് ബഹ് റ തിരുവനന്തപുരത്ത് പറഞ്ഞു

ആവശ്യമായ സ്ഥലങ്ങളിൽ കൂടുതൽ പൊലീസിനെ വിന്യസിപ്പിക്കുന്നതിന് മേഖലാ റേഞ്ച് ഐജി മാരുടെയും ജില്ലാ പൊലീസ് മേധാവിമാരുടെയും നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദേശം നൽകി പുതുതായി പാസിങ് ഔട്ട് കഴിഞ്ഞ വനിത കമാൻഡോകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും സോഷ്യൽമീഡിയ വഴി വ്യാജ വാർത്തകളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കരുതെന്നും അത്തരം വൃാജ വാർത്തകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഡിജിപി പറഞ്ഞു

ഇടുക്കി വയനാട് ജില്ലക ളിൽ കൂടുതൽ സൈനൃത്തെയും ദൂരിതാശ്വാസ സംഘങ്ങ ളെയും വിന്യസിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു കനത്ത ദുരന്തത്തിന്റെ സാഗചര്യത്തിൽ ഗവൺമെന്റിന്റെ ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കി അതി നായി മാറ്റിവെച്ച തുക ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് ചെല വാക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു ഇടുക്കി അണക്കെട്ടിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളത്തിന്റെ അളവ് മൂന്നിരട്ടിയിൽ അധികമായി രാവിലെ ചെറുതോണി അണ ക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകളും ഒരു മീറ്റർ ഉയർത്തിയതോടെയാണ് പെരിയാറ്റിലേക്ക് വർധിച്ച അളവിൽ വെള്ളം ഒഴുകി തുടങ്ങിയ ത്

ആവശ്യമായ മുന്നൊ രുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഇടമലയാർ അടച്ച് ഇടുക്കി യിൽ നിന്നും കൂടുതൽ വെള്ളം ഒഴുക്കുമെന്നും മന്ത്രി ഇടുക്കി യിൽ പറഞ്ഞു കനത്ത മഴ നാശം വിതച്ച ഇടുക്കിയിൽ വിനോദ സഞ്ചാരവും ചരക്ക് വാഹന ഗതാഗതവും നിരോധിച്ചു

മലപ്പുറം ജില്ലയിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മന്ത്രി എ

ജില്ലാ കലക്ടർ ജില്ലാ പോലീസ് മേധാവി ഡിഎംഒ സൈനിക ഉദ്യോഗസ്ഥർ പിപിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് മഴക്കെടുതിയിൽ ഒറ്റപ്പെട്ട മേഖലകൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്

രക്ഷാപ്ര വർത്തനങ്ങൾ തുടരുകയാണെന്ന് നാവികസേന വൃത്തങ്ങൾ കൊച്ചിയിൽ അറിയിച്ചു കനത്തമഴ തുടരുന്ന സാഹചരൃത്തിൽ നെടുമ്പാശ്ശേരി ഹജ്ജ് കൃാമ്പിലേക്ക് സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി ഇനി ഒരറി യിപ്പുണ്ടാകുന്നതുവരെ വിലക്ക് തുടരുമെന്ന് ക്യാമ്പ് ഓഫീസർ അറിയിച്ചു

പലയിടത്തും വെള്ളം ഇറങ്ങിത്തുടങ്ങി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇരിട്ടി താലൂക്കിലെ കരിക്കോട്ട ക്കരി മുണ്ടയാൻ പറമ്പ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി ദുരിതാശ്ചാസ കൃാമ്പുകൾ മന്ത്രി സന്ദർശിച്ചു

കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി തിരുവമ്പാടി കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു മാവൂർ വടകര കാവിലുംപാറ താമരശ്ശേരി ചക്കിട്ടപ്പാറ എന്നിവിടങ്ങ ളിലും കൃാമ്പുകൾ തുറന്നു നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു

നിലമ്പൂർ ചെട്ടിയാംപാറയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ ചാലിയാർ പഞ്ചായത്തിലെ എരുമമുണ്ട സുബ്രഹ്മണ്യന്റെ മൃത ദേഹം കണ്ടെത്തി സുബ്രഹ്മണ്യന്റെ കുടുംബത്തിലെ അഞ്ച് പേരും ഇന്നലെ ഉരുൾപൊട്ടലിൽ മരിച്ചിരുന്നു

വയനാട് വൈത്തിരിയിൽ പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ കെട്ടിടം തകർന്നു വീണു

സമീപത്ത് നിർത്തി യിട്ടിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സ്ംഭവിച്ചിട്ടുണ്ട് വൈത്തിരി ബസ്റ്റാൻഡിനു സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത് സിപിഐഎം നിർണ്ണായക സെക്രട്ടറിയേറ്റും സംസ്ഥാന കമ്മിറ്റിയും തിരുവനന്തപുരത്ത് ചേരുന്നു മന്ത്രിസഭാ പുനഃസം ഘടന ചർച്ച ചെയ്യാനാണ് യോഗം മന്ത്രിസഭയിലേക്ക് ഇ പി ജയരാജന്റെ തിരിച്ചു വരവും യോഗത്തിൽ ചർച്ചയായേക്കും സംസ്ഥാനത്തെ വിവിധ ട്ടൂറിസം പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനവുമായി ചർച്ച നടത്തി സ്വദേശി ദർശൻ പദ്ധതിയിൽ സംസ്ഥാനം മുന്നോട്ട് വെച്ച ശ്രീനാരായണ ഗുരു സർക്യൂട്ട് കാലടി മലയാറ്റൂർ തീർത്ഥാടന സർക്ക്യൂട്ട് എന്നി വയ്ക്കും പ്രസാദ് പദ്ധതിയിലെ നാലമ്പലം സർക്യൂട്ട് സെന്റ് തോമസ് രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രം എന്നിവയ്ക്കും അനു മതിയും സാമ്പത്തിക സഹായവും തേടിയാണ് അദ്ദേഹം കൂടി ക്കാഴ്ച്ച നടത്തിയത്

പൈതൃക തനിമയോടെ ആറന്മുളയുടെ തനത് ശൈലിയിലെ വള്ളംകളി മത്സരമാണ് ജലമേളയിൽ നടക്കുന്നത് ഇതനാവശ്യമായ പ്രോത്സാഹനമെന്ന നിലയിലാണ് കേന്ദ്രം ധനസഹായം നൽകിയത് സംസ്ഥാന ഗവൺമെന്റിന്റെ പതിനൊന്നാം ശമ്പള പരിഷ് കരണം നടപ്പാക്കുന്നതിന് കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് ഗവ

അടുത്ത വർഷം ജൂലൈ ഒന്നിന് നിലവിൽ വരേണ്ട ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ നിയമിക്കുകയോ വൃവസ്ഥകൾ നിശ്ചയിക്കുകയോ ചെയ്യാത്തു ശമ്പള പരിഷ് കരണം അട്ടിമറിക്കാനുള്ള സ്ഥാന ഗവൺമെന്റിന്റെ ഗൂഡനീക്കമാണെന്ന് കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരുന്നആനുകൂലൃങ്ങളും അവകാശങ്ങളും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണ് തൊഴിൽ നിയമ ഭേദഗതിയെന്ന് എഐടിയുസി സംസ്ഥാന സെക്രട്ടറി എം വി വിദ്യാധരൻ കൊല്ലത്ത് പറഞ്ഞു എഐടിയുസി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബിഎസ്എൻഎൽ ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കന്യാസ്ത്രീയെ മാനഭംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണസംഘം ഇന്ന് ജലന്ധറിലെത്തും